പ്രചാരണത്തിന് ഇന്ന് പ്ലൈകിട്ട് കൊട്ടിക്കലാശം

ഉയിർപ്പിന്റെയും പ്രത്യാശയുടെയും ന് സന്ദേശവുമായി ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു

ഏറ്റമുട്ടലിൽ രണ്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു

ലുധിയാനയിൽ നടക്കുന്ന സന്തോഷ്ട്രോഫി ഫൈനലിൽ പഞ്ചാബ് സർവ്വീസസിനെ നേരിടും

കൊളംബോയിലെ പള്ളികളിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലുമാണ് സ്ഫോടനമുണ്ടായത് കൊളംബോയിലെ സെന്റ ആന്റണീസ് ചർച്ച് കൂടാതെ മറ്റ് രണ്ട്ട് പള്ളികളിലും കൂടി സ് ഫോടനം നടന്നതായി കൊളംബ്യോ പൊലീസ് സ്ഥിരീകരിച്ചു

സ്ഫോട്ടനത്തെ തുടർന്ന് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയ്പ്പൂമാ്യി നിരന്തരം സമ്പർക്കം പുലർത്തുന്നതായി ഇിന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അറിയിച്ചു

കൊട്ടിക്കലാശം കൊഴുപ്പിക്കാനും വോട്ട് ഉറപ്പിക്കാനുമുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും നാളെ നിശബ്ദ പ്രചാരണമാണ്

എ വീണ്ടും അധികാരത്തിലെത്തി യാൽ അഴിമതിയും ക്കുടുംബ രാഷ്ട്രീയവും ദരിദ്രരെ ചൂഷണം ചെയ്യുന്നതും അവസാനിപ്പിക്കുമെന്ന് ശ്രീ

കോൺഗ്രസ്സ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഛത്തീസ്ഗഡിലും ബീഹാറിലും ഇന്നലെ പ്രചാരണം നടത്തി കോൺഗ്രസ്റ്റ് അധികാര ത്തിൽ എത്തിയാൽ പട്ടിണിക്കെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമെന്ന് ശ്രീ

ബീഹാറിൽ ജെ

അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ നിതീഷ്കുമാർ സോപോളിലും മധേപൂരിലും പ്രചാരണം നടത്തി ഉത്തർപ്രദേശിൽ സമാജ് വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ബി

ഡി

ന്യൂസ് ഡസ്ക് ആകാശവാണി

പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അഥവാ പബ്ളിക് ലിമിറ്റഡ് കമ്പനികൾ നൽകിയ ഫോട്ടോയോടുകൂടിയ സർവീസ് തിരിച്ചറിയൽ കാർഡ് ഫോട്ടോയോടുകൂടിയ ബാങ്ക് പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക് പാൻ കാർഡ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിനായി രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ നൽകിയ സ്മാർട്ട് കാർഡ് തൊഴിലുറപ്പു പദ്ധതിയുടെ ജോബ് കാർഡ് തൊഴിൽ മന്ത്രാലയം അനുവദിച്ച ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഫോട്ടോയോടു കൂടിയ പെൻഷൻ രേഖ എം പി എം

എൽ സി മാർക്ക് അനുവദിച്ചിട്ടുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡ് എന്നീ രേഖകളാണ് വോട്ടർ കാർഡിനു പകരമായി തിരിച്ചറിയൽ രേഖയായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ളത്

ഇംസ്ലാംപൂർ കാണ്ടി നോവ്ദ ഹാബിബ്പൂർ ഭട്ട്പാര എന്നീ മണ്ഡലങ്ങളിലാണ് ഉപ്പതെരഞ്ഞെടുപ്പ് നടക്കുന്നത്

ഇന്ന് തന്നെ മറുപടി നൽകണമെന്നും കമ്മീഷൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു

സിദ്ധു തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം പ്രഥമദൃഷ്ട്യാ ലംഘിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു

ഈസ്റ്ററിനോട് അനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു

ദില്ലി ഗുഡ് ഹാർട്ട് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി മലയാളികൾ പങ്കെടുത്തു ദോഹ ഓർത്തഡോക്സ് പള്ളിയിൽ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് ബസേലിയോസ് പൌലോസ് ദ്വിതിയൻ കാത്തോലിക്കാ ബാവയാണ് നേതൃത്വം നൽകിയത് തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് സൂസപാക്യം പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി കർദ്ദിനാൾ ബസേലിയോസ് ക്സിമ്മിസ് കത്തോലിക ബാവയാണ് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ പ്രാർഥനക്ക് നേതൃത്വം നൽകിയത്

എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ അങ്കമാലി അതിരൂപതാ സഹായ മെത്രാൻ ബിഷപ്പ് ജോസ് പുത്തൻവീട്ടിലിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ

മേഖല്യിൽ മാവോയിസ്റ്റ് സാന്നിദ്ധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് സംഘം തെരച്ചിൽ നടത്തുകയായിരുന്ന കവർഗട്ടിൽ വെച്ചായിരുന്നു ഏറ്റുമുട്ടൽ സംഭവസ്ഥലത്തു നിന്ന് മാവോയിസ്റ്റുകളുടെ മൃതശരീരവും ആയുധങ്ങളും കണ്ടെടുത്തു

രാജ്യത്തെ സേവിക്കുന്ന സ്ഥിരോത്സാഹികളായ എല്ലാ സിവിൽ സർവന്റ്സിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ അറിയിച്ചു ഉദ്യോഗസ്ഥരുടെ കഠിനാദ്ധാനം രാജ്യത്തിന്റെ വികസനത്തെ സഹായിച്ചതായി പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു ശക്തമായ ഭരണസംവിധാനത്തെ രൂപപ്പെടുത്തുന്നതിൽ സർദാർ വല്പഭായി പട്ടേൽ വഹിച്ച പങ്കിനെയും പ്രധാനമന്ത്രി അനുസ്മരിച്ചു

രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ഹിന്ദുസമൂഹത്തെ അപകീർത്തിപ്പെടുത്താനുമാണ് പൃഥിരാജ് ചൌഹാൻ ശ്രമിക്കുന്നതെന്ന് ശ്രീ

മാലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെടുത്തിയാണ് ശ്രീ പൃഥിരാജ് ചൌഹാൻ വിവാദ പരാമർശ്യാ നടത്തിയത്

ഇതേ തുടർന്ന് മക്കാ മദീനയിലേക്ക് എത്തിച്ചേരുന്ന മുഴുവൻ തീർത്ഥാടകർക്കും താമസവും യാത്രാസൌകര്യവുൾപ്പെടെയുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്താ നാണ് ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ ശ്രമം

വിവിധോദ്ദേശൃ ഹെലികോപ്റ്ററുകളെ വഹിക്കാൻ കഴിയുന്ന നാവികസേനയുടെ മൂന്നാമത്തെ കപ്പലാണ് ഇംഫാൽ

പാലക്കാട് ജില്ലിയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് ഒരുല്ലോ് അലെർട്ട് പ്രഖ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷ്ട്രൺ വകുപ്പ് അറിയിച്ചു

ക്രിക്കറ്റിൽ ഇന്ന് സൺ റൈസേഴ്സ് ഹൈദ്രാബാദ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും